നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം കൊട്ടിക്കലാശം ഒഴിവാക്കിയുള്ള പ്രചാരണം ആവേശമാക്കി മുന്നണികൾ സംസ്ഥാനം മറ്റെന്നാൾ പോളിംഗ് ബ്മത്തിലേക്ക്

വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാപ്പിള്ല് ഏഴു മുതൽ വൈകിട്ട് ഏഴ് വരെ കോവിഡ് മാനദണ്ഡ് പാലിക്കാൻ ബൂത്തുകളിൽ ന് വിപുലമായ സജ്ജീകരണം

വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അദ്ധൃക്ഷതയിൽ ഉന്നതതലയോഗം ചേരുന്നു ലോകത്തിന് പ്രതീക്ഷയുടെവെളിച്ചമേകി ഇന്ന് ഈസ്റ്റർ

ക്രൈസ്ത ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുകർമ്മങ്ങളും നടന്നു

നിയമസഭാ തെരഞ്ഞെടുപ്പിനും മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനുമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വൈകിട്ടോടെ തിരശ്ശീല വീഴും കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ബൈക്ക് റാലിയും അനുവദിക്കില്ല

മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഏറനാട് നിലമ്പൂർ വണ്ടൂർ കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ വൈകിട്ട് ആറിന് പരസൃ പ്രചരണം അവസാനിക്കും

ഇൌർമുണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് രാവിലെ ഏഴുമുതൽ വൈകിട്ട് ആറ്റു വ്രെയാണ് മറ്റു മണ്ഡലങ്ങളിൽ വൈകിട്ട് ഏഴുവരെ വ്യേട്ടു് ചെയ്യാം കർശന കോവിഡ് മാനദണ്ഡങ്ങൾ വോട്ടെട്ടുപ്പിന്റ് കമ്മീഷൻ ബാധകമാക്കിയിട്ടുണ്ട്

കോൺഗ്രസ് നേതാവും വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർ മിക്ക ജില്ലകളിലും പ്രചാരണത്തിൽ പങ്കുചേർന്നു സിപിഎം നേതാക്കളായ പ്രകാശ്കാരാട്ട് വൃന്ദാകാരാട്ട് സീതാറാം യെച്ചൂരി എന്നിവരും പ്രചാരണത്തിൽ സജീവമായിരുന്നു സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലും എല്ലാ മുന്നണികളും പ്രചാരണം ആവേശകരമാക്കി

കേന്ദ്രമന്ത്രി നിർമ്മലാസീതാരാമൻ കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

കൂടാതെ നക്സൽ ബാധിത ബുത്തുകളിലും ക്രിട്ടിക്കൽ വൾനറബിൾ ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷൻ വളപ്പിനുള്ളിൽ കേന്ദ്രസേനയെയാണ് നിയോഗിക്കുക

ങ്ങളും സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാമേഖലകളാക്കി തിരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസി ച്ചിട്ടുണ്ട്

ഇത്രയധികം ക്യേന്ദ്രൻസനാവിഭാഗങ്ങൾ തിരഞ്ഞെടുപ്പിന് വിന്യസിക്കപ്പെടുന്നത് ആദ്യമായാണ്

ക്യാബിനെറ്റ് സെക്രട്ടറി ആരോഗൃ സെക്രട്ടറി നിതി ആയോഗ് അംഗം എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്

ജനങ്ങൾ ഒപ്പം പ്രിന്റീന്ന്താണ് പ്രതിസന്ധികളെ നേരിടാൻ സർക്കാരിന് കരുത്തായിത് നുണപ്രചാരണമുണ്ടായെന്നും ഒരുപാട് എന്നാൽ സർക്കാരിനെതിരായ ജനവികാരം ഉണ്ടാക്കാനായില്ല നുണകളുടെ ചീട്ട് കൊട്ടാരം നിർമ്മിക്കുന്ന വാസ്തുശില്പികളായി പ്രതിപക്ഷം മാറിയിരിക്കുന്നതായി മുഖ്യമന്ത്രി കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ സൃഷ്ടിക്കാനാണ് പ്രതി പക്ഷം ശ്രമിച്ചത്

കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും ബിജെപി ഭരിക്കുന്ന ഉത്തർപ്രദേശിനും പിന്നിലാണ് കേരളത്തിന്റെ കടമെന്ന് റിസർവ്വ് ബാങ്ക് പ്രസിദ്ധീകരണത്തിലുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് കേരളം വൈദ്യുതി വാങ്ങുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലകളിലൂടെ വയനാട് പരസ്യപ്രചാരണം അവസാനിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരമാവധി സ്ഥലങ്ങളിലെത്തി പ്രചാരണം നടത്തി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥികളെല്ലാം

ഇൌസറ്റ്റിന്റെ തിരുകർമ്മങ്ങൾ ഇന്നലെ ്യൂഢ്ർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി വിവിധ ദേവാലയങ്ങളിൽ നടന്നു

പഞ്ചാപകേശൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുചെയ്യാനെത്തുന്ന ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ്